വിലയിരുത്തി കേരളം ഉൾപ്പെടെ തീവ്ര വ്യാപന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി

പതിമൂന്നര കോടി കവിഞ്ഞു

കേരളത്തിൽ വാക്സിൻ വിതരണം പുരോഗമിക്കുന്നു

രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖം രേഖപ്പെടുത്തി

ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിംഗ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

ഓക്സിജൻ ലഭ്യതയും വിതരണ സ്ഥിതിയും ശ്രീ നരേന്ദ്രമോദി വിലയിരുത്തും

കോവിഡിന്റെ രണ്ടാം വരവ് ശക്തമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗ ബാധയാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്

ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന മരണനിരക്കാണിത്

എയിംസ് ഐ സി എം

അതോറിറ്റി ചെയർമാൻ എസ്

ഓക്സിജൻ കണ്ടൈനറുകൾക്കും വാഹനങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കരുത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർ ഭല്ലയാണ് ചീഫ് സെക്രട്ടറിമാർക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതുസംബന്ധിച്ച് കത്തയച്ചത്

രാജ്യത്തെ ഓക്സിജൻ ഉത്പാദനവും വിതരണ സ്സംവിധാനങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തു ന്നതിനുള്ള മാർഗ്ഗങ്ങൾ ആരായണമെന്ന് പ്രധാനമന്ത്രി മന്ത്രാലയ ങ്ങളോട് നിർദ്ദേശിച്ചു

തീവ്രപരിചരണ വിഭാഗത്തിലെ ശീതീകരണ സംവിധാനത്തിലുണ്ടായ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം

കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് ഹർഷ് വർധൻ എന്നിവരും സംഭവത്തിൽ ദുഖം രേഖപ്പെടുത്തി

ശനി ഞായർ ദിവസങ്ങളിൽ അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വൃക്തമാക്കി ഈ ദിവസങ്ങളിൽ പരിശോധനയും നിരീക്ഷണവും കർശനമാക്കുമെന്ന് തിരുവനന്തപുരം റേഞ്ച് ഡി

റിപ്പോർട്ട്

പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പ്രസാധനവും പകർപ്പവകാശവും സംരക്ഷിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ സന്ദേശം

ഡ്മിജിറ്റൽ യുഗത്തിലും പുസ്തക പ്രസാധനത്തിലും പുസ്ത്രക് വായനയിലും കുറവ് വന്നിട്ടില്ലെന്നതാണ് വസ്ത്രിത്

ദിവസവും വായനയ്ക്കായി ഒരു മണിക്കൂർ മാറ്റി വയ്ക്കൂ അത് നിങ്ങളെ അറിവിന്റെ കേന്ദ്രമായി ഏതാനും ് നാളുകൾക്കുള്ളിൽ തന്നെ മാറ്റുമെന്നാണ് മുൻ രാഷ്ട്രപതി എപിജെ അബ്ദുൽ കലാം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്

ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസിനെ തോൽപിച്ചു

മൂന്നു വെങ്കല മെഡലുകൾ കൂടി ഇന്ത്യക്ക് ലഭിച്ചു

സംഗീത സംവിധായകൻ നദീമിനൊപ്പമുള്ള കൂട്ടുകെട്ട് നിരവധി ഹിറ്റ് ഗാനങ്ങളാണ് സമ്മാനിച്ചത് മികച്ച സംഗീത സംവിധാനത്തിനുള്ള ഫിലിം ഫെയർ അവാർഡ് തുടർച്ചയായി മൂന്നു തവണ നദീം ശ്രാവൺ ജോഡി സ്വന്തമാക്കിയിട്ടുണ്ട്

സ്വർണവില കുറഞ്ഞു